ത കോവിഡ് പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗം ഉച്ച കഴിഞ്ഞ് തിരുവന്തപുരത്ത്

സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ അനിവാര്യമെന്നും മന്ത്രി

ഇ കിറ്റ് അടക്കം കൈകാര്യം ചെയ്യുന്ന വാണിജ്യ സ്ഥാപനങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മറ്റ് സ്ഥാപനങ്ങൾ ഓഫീസുകൾ എന്നിവയും ഇതേ നടപടിക്രമം പാലിക്കേണ്ടതാണ് ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റുന്ന ബയോ മെഡിക്കൽ മാലിന്യങ്ങൾ മറ്റിടങ്ങളിലെ മാലിന്യങ്ങൾക്കൊപ്പം കൂട്ടിക്കലർത്താൻ പാടില്ല

ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ ചെറിയ തോതിൽ രോഗം ബാധിച്ചവർക്കും രോഗത്തിന്റെ ആദ്യഘട്ടത്തിലും ഈ മരുന്ന് വളരെ പ്രയോജനപ്രദമാണെന്നാണ് കണ്ടെത്തൽ

ലബോറട്ടറി പരിശോധനയിൽ മികവ് തെളിയിച്ച കിറ്റ് കൂടുതൽ വിപുലമായ പരീക്ഷണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യയുടെ രാജ്യരക്ഷാ വികസന സംഘടനയും ഇസ്രായേലിന്റെ പ്രതിരോധ ഗവേഷണ വിഭാഗവും ചേർന്നാണ് കിറ്റ് പരീക്ഷിക്കുന്നതെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫ

രുര കോവിഡ് വ്യാപനം തടയുന്നതിന് ഇന്ത്യയ്ക്ക് ശക്തമായ പ്രാപ്തിയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനാ അടിയന്തര പദ്ധതി മേധാവി ഡോ

രുമ കോവിഡ് പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗം ഇന്ന് ചേരും ഉച്ച കഴിഞ്ഞ് മൂന്നിന് വിഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തേക്കും രുര കോഴിക്കോട്ട് നിരീക്ഷണത്തിലിരിക്കെ ഇന്നലെ മരിച്ച പന്നിയങ്കര സ്വദേശി എം

പക്ഷാഘാതത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ച കാരപ്പറമ്പ് സ്വദേശിനി റുഖിയാബിയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്

തദ്ദേശ സ്ഥാപനങ്ങളാണ് സെന്ററുകൾ ഒരുക്കുന്നത് രുമ കോവിഡ് രോഗികളുടെ സമ്പർക്ക പട്ടികയിൽ വരുന്ന ആരോഗ്യ പ്രവർത്തകരും പൊലീസുകാരും നിരീക്ഷണത്തിൽ പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ വർദ്ധിച്ചിട്ടുണ്ട്

ജില്ലയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത് നീരജ് ലാൽ

പാലക്കാട് വലിയങ്ങാടി പുതുനഗരം മത്സ്യ മാർക്കറ്റുകൾ ഷൊർണൂർ ഒറ്റപ്പാലം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണ് രുദ വയനാട് ജില്ലാ ആശുപത്രിയിൽ കോവിഡ് സ്ഥിരീകരിച്ച ഒരു രോഗിക്ക് കൂടി പ്ലാസ്മ ചികിത്സ നൽകി

രേര കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർക്കു കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഗൈനക്കോളജി പാതോളജി വിഭാഗങ്ങളിലെ ഡോക്ടർമാർക്കാണ് രോഗം ബാധിച്ചത്

ദേദ കണ്ണൂർ അഞ്ചരക്കണ്ടി കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച കോവിഡ് രോഗി ആശുപത്രിയിൽ നിന്ന് ചാടി പോയി

മോഷണ കേസിൽ ജാമ്യം കിട്ടിയ ഇയാളെ ഇന്നലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രുമ കോട്ടയം ജില്ലയിൽ സമ്പർക്കം മൂലം കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ച് വരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കാനും ജാഗ്രത പുലർത്താനും ജില്ലാ ഭരണകൂടം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു

വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണിൽ തുടരും ജില്ലാ പ്രതിനിധി നസീർ ബാബുവിന്റെ റിപ്പോർട്ട്

കൊച്ചിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത ശേഷം സ്വകാര്യ ചാനലിനോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി രമ സ്വർണ്ണക്കടത്ത് കേസിൽ എൻ

എ അന്വേഷണം സെക്രട്ടറിയേറ്റിൽ എത്തിയത് കേരളത്തിന് അപമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രി മാന്യമായി രാജിവെച്ച് പുറത്തുപോകണം കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ആദ്യം മുതൽ സ്വീകരിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി രേര സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി ബി

പി സംസ്ഥാന പ്രസിഡന്റ് കെ

സെക്രട്ടേറിയറ്റിലെ സി

വി ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ ശ്രമം നടന്നതായും അദ്ദേഹം പറഞ്ഞു കസ്റ്റംസ് ആവശ്യപ്പട്ടിട്ടും ദൃശ്യങ്ങൾ കൈമാറാത്തതിനെത്തുടർന്നാണ് എൻ ഐ എ അന്വേഷണം സെക്രട്ടറിയേറ്റിൽ എത്തിയതെന്നും സുരേന്ദ്രൻ വിലയിരുത്തി രുമ തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായ സ്വപ്ന സുരേഷ് സന്ദീപ് നായർ എന്നിവരെ കസ്റ്റംസ് ചോദ്യം ചെയ്തു

കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം

തിങ്കളാഴ്ച കൊച്ചിയിലെത്താൻ നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട് രുമ ഓഹരി വിപണികളിൽ ഇന്ന് വൻ ഇടിവ്

ദേദ സ്വർണ വില ഇന്നും വർധിച്ചു